കായികമേളയുടെ ആദ്യദിനത്തിൽ ഡൽഹിക്ക് അഞ്ച് സ്വർണ്ണം

ലോക്സഭ നേരത്തെ ബിൽ പാ സാക്കിയിരുന്നു സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന്വർക്ക് സംവരണം ഏർപ്പെടുത്താനുള്ള് നീക്കം ചരിത്രപരമാണെന്ന് ചർച്ചകൾക്ക് മറുപടി പറഞ്ഞ് കേന്ദ്രമന്ത്രി തവർചന്ദ് ഗെഹ്ലോട്ട് പ റഞ്ഞു ബിൽ തിടുക്കുത്തിലാണ് കൊണ്ടുവന്നതെന്ന് പ്രതിപക്ഷ ആ രോപണം തള്ളിയ അദ്ദേഹം ഇക്കാര്യം ദീർഘനാളായി ഗവൺ മെന്റിന്റെ മുന്നിലുള്ളതാണെന്ന് ചൂണ്ടിക്കാട്ടി ഭരണഘടനയിൽ നി ർദ്ദിഷ്ട മാറ്റങ്ങൾ വരുത്താനായാൽ ബിൽ സുപ്രീംകോടതിക്ക് ത ള്ളാനാകില്ലെന്നും അദ്ദേഹം മറുപടി നൽകി എന്നാൽ ബിൽ വേണ്ടത്ര തയാറെടുപ്പില്ലാതെ തിടുക്കത്തിൽ കൊണ്ടുവരികയായിരുന്നുവെന്ന് ചർച്ചയിൽ കോൺഗ്രസ് നേതാവ് ആനന്ദ് ശർമ ആരോപിച്ചു ബില്ലിനെ അനുകൂലിച്ച് സം സാരിച്ച സമാജ് വാദി പാർട്ടി നേതാവ് രാം ഗോപാൽ വർമ ഒബിസി പട്ടികവിഭാഗങ്ങളുടെ സംവരണത്തോത് വർധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു നിലവിൽ നൽകി വരുന്ന സംവരണത്തിൽ കുറവ് വരുത്താതെയാണ് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് സംവരണം ഏർപ്പെടുത്തുന്നതെന്ന് കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് ചൂണ്ടിക്കാട്ടി സംവരണ ബിൽ പാസായതിനെ സാമൂഹ്യനീതിയുടെ വിജയമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിച്ചു ഇതിലൂടെ രാജ്യത്തെ യുവാക്കൾക്ക് തങ്ങളുടെ സാമർത്ഥ്യം തെളിയിക്കാനും രാജ്യത്തിന്റെ പരിവർത്തനത്തിനായി സംഭാവന ചെയ്യാനും സാധിക്കുമെന്നും ശ്രീ

രാഹുൽ ഗാന്ധിയുടെ പ്പേര് എടുത്ത് പറയാതെ കോൺഗ്രസ് നേതാവ് നടത്തിയ പ്രരാമർശം രാജ്യത്തെ എല്ലാ സ്ത്രീകളെയും അപമാനിച്ചതായി ശ്രീ

റാഫേൽ കരാറുമായി ബന്ധപ്പെട്ട് ചർച്ചയിൽ സംസാരിക്ക്വെ ശ്രീമതി നിർമ്മല സീതാരാമനെ പ്രതിപക്ഷ നേതാക്കൾ അപമാനിച്ചതിന് രാജ്യം സാക്ഷിയാണെന്ന് ഉത്തർപ്രദേശിലെ ആഗ്രയിൽ ഒരു പൊതു പരിപാടിയിൽ പ്രധാനമന്ത്രി പറഞ്ഞു അഴിമതി തുടച്ചു നീക്കാനുള്ള തന്റെ ശ്രമങ്ങളെ ഭയന്നാണ് പ്രതിപക്ഷ പാർട്ടികളായ എസ്

പിയും യോജിക്കുന്നതെന്ന് ശ്രീ

അഴിമതിക്കെതിരെയുള്ള യുദ്ധത്തിൽ ഇരുട്ടിൽ നിന്ന് പോലും തെറ്റു ചെയ്യുന്നവരെ പിടികൂടുന്ന കാവൽക്കാരനാണ് താനെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

വി ഐ

ഹെലികോപ്റ്റർ കേസിൽ അറസ്റ്റിലായ ഇടനിലക്കാരൻ ക്രിസ്റ്റ്യൻ മിഷേൽ യു

എ ഭരണകാലത്ത് മറ്റൊരു വിമാന ഇടപാടിനുകൂടി ശ്രമിച്ചിരുന്നതായി മാധ്യമങ്ങളെ ഉദ്ധരിച്ച് പ്രധാനമന്ത്രി പറഞ്ഞു തങ്ങളുടെ പാർട്ടിയിലെ ഏത് നേതാവിനാണ് മിഷേലുമായി ബന്ധമെന്ന് കോൺഗ്രസ് വ്യക്തമാക്കണമെന്ന് ശ്രീ നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു

റിഫ്രേൽ ഇടപാട് സംബന്ധിച്ച ചർച്ചയിൽ രാജ്യരക്ഷാ മന്ത്രു നിർമ്മലാ സീതാരാമന്റെ ഇടപെടലിനെ കുറിച്ചായിരുന്നു ശ്രീ

അതിനിടെ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ സ്ത്രീകൾക്കെതിരെ ഇത്തരത്തിൽ മോശം പരാമർശം നടത്താൻ പാടില്ലെന്ന് അഭിപ്രായപ്പെട്ട ദേശീയ വനിതാകമ്മീഷൻ അദ്ധ്യക്ഷ രേഖാ ശർമ്മ പരാമർശം സംബന്ധിച്ച് ശ്രീ രാഹുൽഗാന്ധിയുടെ വിശദീകരണത്തിനായി അദ്ദേഹത്തിന് നോട്ടീസ് അയച്ചതായും അറിയിച്ചു

വോയ്സ് രാവിലെ കേസ് പരിഗണിച്ചപ്പോൾ ജസ്റ്റിസ് യു

ലളിത് വാദം കേൾക്കുന്നതിൽ നിന്ന് പിന്മാറി തുടർന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗോഗോയുടെ നേതൃത്വത്തിൽ പുനസംഘടിപ്പിക്കപ്പെട്ട ബഞ്ചാണ് കേസ് പരിഗണിച്ചത് നേരത്തെ കേസുമായി ബന്ധപ്പെട്ട് മറ്റൊരു കോടതിയലക്ഷ്യ കേസിൽ ജസ്റ്റിസ് യൂ ിയു ്ലളിത് കല്യാൺസിങിന്റെ അഭിഭാഷകനായി ഹാജരായത് മുസ്ളീം വിഭാഗം ചൂണ്ടിക്കാണിച്ചതിന്നെ തൂടർന്നാണ് അദ്ദേഹം പിൻമാറിയത് ചീഫ് ജസ്റ്റിസിന് പുറമെ ജസ്റ്റിസുമാരായ എസ്

എന്നാൽ അടുത്തിടെ അയോദ്ധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം സംബന്ധിച്ച് ഓർഡിനൻസ് വേണമെന്ന വിവിധ ഹിന്ദു സംഘടനകളുടെ ആവശ്യം കേസിലെ കോടതി വിധിയ്ക്ക് ശേഷമേ പരിഗണിക്കൂ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസ്താവിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് ആകാശവാണി

എസ് ടി ഇന്റലിജൻസ് വിഭാഗം അറസ്റ്റ് ചെയ്തു

ടി ഈടാക്കിയെങ്കിലും ഇത് ഗവൺമെന്റിൽ ഒടുക്കിയിട്ടില്ലെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു കൂടാതെ നികുതിപ്പണം സ്വകാര്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട്

അതിനിടെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുമ്പാകെ റിസോർട്ട് ഉടമ കുറ്റം സമ്മതിച്ചതായും ജി എസ്

നിയമനടപടിയായി സ്ഥാപനത്തിന്റെ അഞ്ച് ബാങ്ക് അക്കൌണ്ടുകളും താത്കാലിമായി മരവിപ്പിച്ചിരിക്കുകയാണ്

പ്രളയക്കെടുതി നേരിടുന്നതിനായി കേരളത്തിന് രണ്ട് വർഷത്തേക്ക് സെസ് ഏർപ്പെടുത്താൻ ബിഹാർ ഡെപ്യൂട്ടി മുഖ്യമന്ത്രി സുശിൽമോദിയുടെ അദ്ധ്യക്ഷതയിലുള്ള മന്ത്രിതല സമിതി അനുമതി നൽകിയിട്ടുണ്ട് ഒരു ശതമാനം സെസ് രണ്ട് വർഷത്തേക്ക് ഏർപ്പെടുത്താനാണ് ശുപാർശ ഏതെല്ലാം ഉല്പന്നങ്ങൾക്കും സേവനങ്ങൾക്കുമാണ് സെസ് ഏർപ്പെടുത്തുന്നതെന്ന് കേരളം തീരുമാനിക്കും സമിതി റിപ്പോർട്ട് ഇന്ന് യോഗം പരിഗണിക്കും

ടി നിരക്കിൽ ഇളവ് അനുവദിക്കണ്മെന്ന കേന്ദ്ര ധനകാര്യ സഹമന്ത്രി ശിവ് പ്രത്യാപ് ശുക്ലയുടെ നേതൃത്വത്തിലുള്ള സമിതിയും നിർദ്ദേശം നൽകിയിട്ടുണ്ട്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

സിയുടെ ലോക്സഭ എം

ബിജെപി യിൽ ചേരുന്നതിന് മുന്നോടിയായി ശ്രീ സൌമിത്ര ഖാൻ ഇന്നലെ പാർട്ടി ദേശീയ അധ്യക്ഷൻ അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ബിഷ്ണുപൂർ മണ്ഡലത്തിൽ നിന്നുള്ള എം പിയാണ് സൌമിത്രാ ഖാൻ ബോൽപൂർ എം

അനുപം ഹസ്നയും ബിജെപിയിൽ ചേരുമെന്നാണ് സൂചന

സി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി

പിമാർ കൂടി ലോക്സഭ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബിജെപിയിൽ ചേരാൻ സന്നദ്ധരാണെന്ന് ബിജെപി നേതാവ് മുകുൽ റോയ് പറഞ്ഞു

എസ് ചൈന വ്യാപാരയുദ്ധം അവസാനിപ്പിക്കുന്നതിനായി ഇരു വിഭാഗവും തമ്മിൽ ബീജിംഗിൽ നടിന്നു ചർച്ചകൾ സമാപിച്ചു ചർച്ചകൾ നല്ല രീതിയിൽ നടന്നതായി ് യു

വാണിജ്യകാര്യ അണ്ടർ സെക്രട്ടറി ടെഡ് മെക്കീന്നെ ്ഇന്നലെ അറിയിച്ചു ചർച്ചകൾ തുടരാനുള്ള തീരുമാനം വീഷ്യം ഇരുവിഭാഗവും പ്രാധാനൃത്തോടെ പരിഗണിക്കുന്നതിന്റെ കെളിവാണെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ്ലു ക്രാങ്ങ് മാധ്യമങ്ങളോട് പറഞ്ഞു

കേന്ദ്ര കായികമന്ത്രി രാജ്യവർദ്ധൻ സിങ്ങ് റാത്തോഡ് ഉദ്ഘാടനം ചെയ്തു

ആദ്യ ദിനം അഞ്ച് സ്വർണ്ണമെഡലുമായി ഡൽഹി ഒന്നാമതും മൂന്ന് സ്വർണ്ണവുമായി മഹാരാഷ്ട്ര രണ്ടാമതും രണ്ട് സ്വർണ്ണവുമായി ഹരിയാന മൂന്നാമതുമാണ് മണിപ്പൂർ ജമ്മു കാശ്മീർ ഉത്തർപ്രദേശ് പശ്ചിമ ബംഗാൾ എന്നിവ ഓരോ സ്വർണ്ണം നേടി

ഗ്രൂപ്പ് എ യിൽ ആതിഥേയരായ യു എ ഇ യാണ് എതിരാളി

എസ് ഡോളർ അനുവദിക്കാൻ ഡെമോക്രാറ്റുകൾ വിസമ്മതിച്ചതിന്നെ തുടർന്ന് മുതിർന്ന ഡെമോക്രാറ്റ് നേതാക്കളുമായുള്ള യോഗത്തിൽ നിന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡോണൾഡ് ട്രംപ് ഇന്നലെ ഇറങ്ങിപ്പോയി